സൈനൃം വധിച്ചു അനന്തനാഗിൽ ഒരു സി

കേന്ദ്ര ഗവൺമെന്റിന്റേയും സി

തെക്കൻ കശ്മീരിലെ ഷൂൽവാമ ജില്ലയിൽ ചേവ ഉളളാർ മേഖലയിലാണ് സംഭവം പ്രദ്ദേശത്ത് ഭീകരുടെ സാന്നിധ്യം സംബന്ധിച്ച് വിവരം ലഭിച്ചതിനെ തുട്ടർന്ന് പൊലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരുച്ചില്പിന്ടെ സൈനൃത്തിനു നേരെ ആക്രമണമുണ്ടാവുകയായിരുന്നു്

ഇന്ന് ഉച്ചതിരിഞ്ഞ് ദേശീയ പാതയിൽ പെട്രോളിംങ് ഡ്യൂട്ടിയിലായിരുന്ന സംഘത്തിനുനേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ഒരു സി ആർ

പ്രദേശവാസിയായ ഒരു കുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് മേഖലയിൽ ഭീകരർക്കായുളള തിരച്ചിൽ തുടരുന്നു

ന്യൂസ് ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇപ്രകാരം തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സായുധ സേനയിലെ മെഡിക്കൽ കോറിലുളള ആരോഗ്യ പ്രവർത്തകരെ മാത്രമാണ് ഡൽഹിയിലേയ്ക്ക് നിയമിച്ചതെന്നും ഇത് ഡൽഹിയിലെ ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാനായിട്ടാണെന്നും കേന്ദ്ര സർക്കാർ വൃക്തമാക്കി

കൂടുതൽ സർക്കാർ സ്വകാര്യ ലബോറട്ടറികൾക്ക് അംഗീകാരം നൽകികൊണ്ട് ഐ സി എം ആർ പരിശോധനാ സൌകര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്

ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷ റദ്ദാക്കലിനാണ് സുപ്രീംകോടതിയുടെ അംഗീകാരം പരീക്ഷകൾ റദ്ദാക്കിയതും പുതുക്കിയ മൂല്യനിർണ്ണയ രീതിയും അടക്കം സി ബി എസ്

പുതിയ പിജ്ഞാപനം സി ബി എസ്

മുഴുവൻ പരീക്ഷ എഴുതിയവർക്ക് അതിനനുസരിച്ച് മാർക്ക് ലഭിക്കും മൂന്നിൽ കൂടുതൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടിയ മൂന്ന് വിഷയങ്ങളിലെ ശരാശരി മാർക്ക് റദ്ദാക്കിയ വിഷയങ്ങൾക്ക് നൽകും മൂന്ന് പരീക്ഷ മാത്രം എഴുതിയവർക്ക് ഏറ്റവും മികച്ച മാർക്ക് ലഭിച്ച രണ്ട് വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കായിരിക്കും റദ്ദാക്കിയ വിഷയങ്ങൾക്ക് ലഭിക്കുക

സി എസ് ഇ പരീക്ഷകൾക്കും ഈ തീരുമാനം ബാധകമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതേസമയം പാലക്കാട് ജില്ലയിലെ വല്ലാപ്പുഴയെ് കണ്ടൈമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി സനൽ പി ഭാസ്കർ വോയിസ് വ്യവസായ മേഖല തങ്ങളുടെ വാർഷിക്ക് ലീാഭത്തിന്റെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഗവേഷ്ട്ര്ന്ന് പ്രവർത്തനങ്ങൾക്കായി മാറ്റിവയ്ക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഇന്നലെ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിമഗ്ിലൂട്ട സംവദിക്കവേയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ല്യൂക്ഡൌണിനെ തുടർന്ന് വൃവസായ മേഖലയിൽ താത്ക്കാലികമായി ഉണ്ടായ പ്രതിസന്ധികളെ ആത്മവിശ്വാസവും ശുഭ്യപ്പതീക്ഷയും ഉണ്ടെങ്കിൽ തരണം ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗത്തിന്റെയും സഹകരണവും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ നിലവിലെ സാഹചര്യം തരണം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ഉൌന്നിപ്പറഞ്ഞു

പ്ലാസ്മ തെറാപ്പിയിലൂടെ മരണ നിരക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഈ അത്യാധുനിക പ്രതിരേറ്റ്യെട്ആക്രമണ സംവിധാനത്തിന് നാവിക സേനയുടെ പരിശോധനക്കൾക്ക് ശേഷമാണ് അംഗീകാരം ലഭിച്ചത്

ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗതാഗത നിയമം ഭേദഗതി ചെയ്യുന്നതിന് മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി